കേരള രാഷ്ട്രീയത്തിലെ ചരിത്ര വനിതയും കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായ കെ

ഗൌരിയമ്മ അന്തരിച്ചു

വിടവാങ്ങിയത് കേരളം കണ്ട കരുത്തുറ്റ വനിതാ നേതാവ് ഗവർണറും മുഖ്യമന്ത്രിയും അനുശ്ശോചനം രേഖപ്പെടുത്തി

വനിതാ ശാക്തീകരണത്തിന്റെ പ്രതീകമാണ് ഗൌരിയമ്മയെന്ന് ഗവർണ്ണർ ജീവിതത്തെ മോചന പോരാട്ടത്തിന്റെ വീരേതിഹാസമാക്കി മാറ്റിയ ധീരവനിതയാണ് കെ ്ആർ ഗൌരിയമ്മയെന്ന് മുഖൃമന്ത്രി

എഴുത്തുകാരനും നടനുമായ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അന്തരിച്ചു

കോവിഡ് ചികിത്സയ്ക്കുള്ള തുക പഞ്ചായത്തുകൾക്ക് പ്താൻ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാമെന്ന് മുഖ്യമന്ത്രി

രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

ഗൌരിയമ്മ അന്തരിച്ചു രാവിലെ ഏഴ് മണിക്ക് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്തൃം

വാർദ്ധകൃസഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പ്രമുഖ ശില്പിയാണ് ഗൌരിയമ്മ കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണ്ണായക യുഗത്തിന്റെ അന്ത്യമാണ് ഗൌരിയമ്മയുടെ നിര്യാണ ത്തോടെ ഉണ്ടായിട്ടുള്ളത്

എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വ ത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണ്ണായക സ്വാധീനം ചെി്ചുത്തിയ ഗൌരിയമ്മ യുടെ ഭരണപാടവവും ആജ്ഞാശക്തിയും എക്കാ്ലവും സ്മരിക്കപ്പെടും

ഗൌരിയമ്മയുടെ ജീവിതവ്ഴി്കളിലൂടെ വോയിസ് സ്വാതന്ത്യാനന്തര കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹ്യവുമായ ചരിത്രഗതിയിൽ നിർണ്ണായകസ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ പ്രമുഖ രാഷ്ട്രീയനേതാക്കളിൽ ഒരാളാണ് കെ

അക്കാലത്ത് ഉന്നതമായി കരുതപ്പെട്ടിരുന്ന നിയമവിദ്യാഭ്യാസം തന്നെ തെരഞ്ഞെടുക്കാൻ തയ്യാറായ കേരളവനിതകളുടെ ആദ്യതലമുറയിൽ പ്പെട്ട കെ

ചേർത്തല കളത്തിപ്പറമ്പിൽ കെ

തിരൂർ ചേർത്തല എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബി

ബിരുദവും തുടർന്ന് എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും കരസ്ഥമാക്കി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ ഗൌരിയമ്മ സജീവമായിരുന്നു

വിതോമസ് സി

ഐയിലും ഗൌരിയമ്മ സി

കേരളത്തിൽ വിവിധകാലങ്ങളിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കളിലും എ

ആന്റണിയും ഉമ്മൻ ചാണ്ടിയും നയിച്ച ഐക്യ ജനാധിപത്യ മുന്നണി മന്തിസഭകളിലൂട്ട അവർ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്ട്ട് സി പി ഐ എം അംഗമായിരുന്ന ഗൌരിയമ്മ പാർട്ടിയിൽ ് നിന്നും പുറത്താക്കപ്പെട്ട തിനെ തുടർന്ന് ജനാധിപത്യ സ്ട്രേക്ഷണ സമിതി രൂപവത്കരിച്ചു പതിനൊന്നാം കേരള നിയമ്സഭയിലെ ഏറ്റവും പ്രായം കൂടിയ നേതാവു കൂടിയായിരുന്നു ്ഥാർരിയമ്മ

ആദരാഞ്ജലി തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു

പൊതുദർശനത്തിനും സംസ്കാര ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിന് കോവിഡ് മാനദണ്ഡ ങ്ങളിൽ സർക്കാർ ചെറിയ ഇളവ് വരുത്തി

അസാധാരണ ധീരതയും കരുത്തുറ്റ നേതൃശേഷിയും ഗൌരിയമ്മയെ വനിതാ ശാക്തീകരണത്തിന്റെ പ്രതീകമായി മാറ്റിയതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു

കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന്റർ കെട്ടിപ്പടുത്തുന്നതിൽ സമാനതകളില്ലാത്ത പങ്കാണ് ഗൌരിയുമ്മീ പ്പ്ഹിച്ചതെന്ന് അനുശോചന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞുകൃ വി

ഗൌരിയമ്മ്യുടെ നിര്യാണത്തിൽ കേന്ദ്രമന്ത്രി വി

കേരള ചരിത്രത്തിനൊപ്പം ചേർത്തുവായിക്കേണ്ട പേരാണ് കെ

മുരളീധരൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

അനുശോചനങ്ങൾ രാഷ്ട്രീയത്തിൽ കനൽ വഴികൾ താണ്ടി ജന മനസ്സ് കീഴടക്കിയ നേതാവായിരുന്നു ഗൌരിയമ്മയെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരള ചരിത്രത്തിലെ ഇതിഹാസ തുല്യമായ ജീവിതമാണ് ഗൌരിയമ്മയുടെ വിയോഗത്തിലൂടെ ഇല്ലാതായിരിക്കുന്ന തെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗൌരിയമ്മയുടെ വിയോഗം കേരള സമൂഹത്തിന് തീരാനഷ്ടമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി പറഞ്ഞു കേരള രാഷ്ട്രീയ ത്തിലെ പെൺ കരുത്തായിരുന്നു കെ

ഗൌരിയമ്മയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

അച്യുതാനന്ദൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അ്ഹ്ഗം പി

കൃഷ്ണദാസ് തുടങ്ങിയവരും ഗൌരിയമ്മയുടെ നിര്യാണിത്തീൽ അനുശോചിച്ചു

തൃശ്ശൂരില്ല സ്വകാര്യ ആശുപത്രിയിൽ കൊവിഡ് ബാധിച്ച് ചികിത്സയില്ലായിരുന്നു ഭ്രഷ്ട് അശ്വത്ഥാമാവ് മഹാപ്രസ്ഥാനം എന്നിവ പ്രശസ്ത കൃതികൾ ദേശാടനം എന്ന ചിത്രത്തിന് തിരക്കഥയെഴുതി ആറാം തമ്പുരാൻ പൈതൃകം ആനച്ചന്തം അഗ്നിസാക്ഷി എന്നീ സിനിമകളിൽ അഭിനയിച്ചു സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ്

പ്ലാൻ ഫണ്ട് കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ച്ചെലവാകുന്ന തുക പഞ്ചായ ത്തുകൾക്ക് അവയുടെ പ്താൻ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ഗുരുതരമായി രോഗം ബാധിച്ചവർ വീടുകളിലെത്തുന്ന വാർഡ് തല സന്നദ്ധ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ സന്നദ്ധ ഭടന്മാർ തുടങ്ങിയ മുൻഗണനാ വിഭാഗത്തിനാണ് ആദ്യം വാക്സിൻ നൽകുന്നത്

രാജീവ് ജയദേവൻ ആകാശവാണിയോട്

കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

കോവിഡ് പ്രതിരോധത്തിൽ ആസ്പത്രിക ളുടെ പ്രവർത്തന വും ജാഗ്രതാസമിതികളുടെ പ്രവർത്തനവും കാര്യക്ഷമമാക്കുന്നതു മായി ബന്ധപ്പെട്ടാണ് യോഗം